പൌരത്വ നിയമ ഭേദഗതിക്കെതിരെ ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ പരത്തുകയാണ് പ്രതിപക്ഷം ചെയ്യുന്നതെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത് ഷാ

ജമ്മുകശ്മീരിൽ ഭീകര്ർക്കായി വ്യാപകവും ശക്തവുമായ തെരച്ചിൽ ആരംഭിക്കാൻ പൊലീസ് നീക്കം

ഈ ദശാബ്ദത്തിലെ ഏറ്റവും മികച്ച ക്രിക്കറ്റ് താരങ്ങളുടെ വിസ്ഡൻ പട്ടികയിൽ ഇന്ത്യൻ ക്യാപ്റ്റൻ വിരാട് കോഹ്ലി ഇടം നേടി

കർക്കർദൂമയിൽ ഈസ്റ്റ് ഡൽഹി ഹബ് വികസനത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം

സിഖ് കലാപത്തിൽ അന്വേഷണത്തിന് പോലും തയ്യാറാകാത്തവയായിരുന്നു കോൺഗ്രസ്സ് ഗവൺമെന്റുകളെന്നും അദ്ദേഹം ആരോപിച്ചു എൻഡിഎ ഗവൺമെന്റ് ഇതിനായി ് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് കുറ്റക്കാരെ ജയിലിൽ അടച്ചതായും അമിത് ഷാ പറഞ്ഞു

പാകിസ്ഥാന്റെ വെടിനിർത്തർ കരാർ ലംഘനം നേരിടാൻ സൈന്യം എല്ലാ നടപടികളും ക്കെകൊള്ളുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു

കശ്മീരിൽ ഒളിഞ്ഞിരുന്ന് വിധംസക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരെ കണ്ടെത്തുകയാണ് തെരച്ചിലിലൂടെ ലക്ഷ്യമിടുന്നത്

ജി

ഇതുവഴി നിയമാനുസൃതമായി ജീവിക്കുന്നവർക്ക് അവരുടെ ദൈന്യംദിന കാര്യങ്ങളിൽ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ലെന്ന് ഉറപ്പാക്കണമെന്ന് സേനയ്ക്ക് ഡി ജി

പൊതുജനങ്ങൾക്ക് ആവശ്യമായ സഹായങ്ങൾ എത്തിക്കണമെന്നും ഡി ജി

റമ്പാൻ ജില്ലയിലുണ്ടായ മണ്ണിടിച്ചിലിനെ തുടർന്ന് ഒരു ദിവസത്തേക്ക് പാത അടച്ചിരിക്കുകയായിരുന്നു

ചന്ദർകോട്ടിലെ തടസ്സങ്ങൾ നീക്കിയ ശേഷമാണ് ഗതാഗതം പുനസ്ഥാപിച്ചത്

വോയ്സ് ഭേദഗതി നിയമത്തിനെതിരെ മാധ്യമങ്ങളിലും പൌരത്യ പൊതുയിടങ്ങളിലും തെറ്റായ വിവരങ്ങളടങ്ങിയ വ്യാജപ്രചരണങ്ങൾ കണ്ടുവരുന്നു ഈ നിയമഭേദഗതി മതപരമായ പീഡനത്തിനിരയായി വർഷങ്ങളായി ഇന്ത്യയിൽ അഭയാർത്ഥികളായി കഴിഞ്ഞുകൂടുന്നവർക്ക് പൌരത്വത്തിലൂടെ സാധാരണ ജീവിതം ഉറപ്പു നൽകുന്നതിനുള്ളതാണ്

വിവിധ രാഷ്ട്രീയ പാർട്ടികളിലെ നേതാക്കളുടെ അഭിപ്രായം മാനിച്ചാണ് ഗവൺമെന്റ് പൌരത്വ നിയമം ഭേദഗതി ചെയ്തത് മഹാത്മാ ഗാന്ധി ജവഹർലാൽ നെഹ്റു സർദാർ പട്ടേൽ രാംമനോഹർ ലോഹ്യ ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധി ഡോ മൻമോഹൻ സിങ് തുടങ്ങിയവരുടെ ആശയങ്ങളുമായി യോജിക്കുന്ന തരത്തിലുള്ളതാണ് ഈ ഭേദഗതി അയൽരാജ്യങ്ങളിലെ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ മനുഷ്യാവകാശം സംരക്ഷിക്കേണ്ടത് ഇന്ത്യയുടെ ഉത്തരവാദിത്തമാണെന്ന് ഈ നേതാക്കൾ വ്യക്തമാക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ആകാശവാണി

വനിതാ ശാക്തീകരണ രംഗത്ത് അതുല്യമായ പ്രവർത്തനം കാഴ്ചവച്ച വ്യക്തികൾക്കും സംഘടനകൾക്കുമാണ് ഈ പുരസ്കാരം നൽകി വരുന്നത്

കേരളത്തിൽ കാസർഗോഡ് ജില്ലയിലെ ചെറുവത്തൂരിലാണ് വലയ സൂര്യഗ്രഹണം ആദ്യമായി ദൃശ്യമായത് വൻ ജനാവലിയാണ് ചെറുവത്തൂരിലും പരിസര പ്രദേശങ്ങളിലും ഇത് കാണാൻ തടിച്ചുകൂടിത്

അന്തരീക്ഷം മേഘാവൃതമായതിനാൽ വയനാട്ടിൽ ഭാഗിക വലയ സൂര്യ ഗ്രഹണമേ കണാനായുള്ളു

സൌദി അറേബ്യ ഖത്തർ യുഎഇ ശ്രീലങ്ക മലേഷ്യ ഇന്തോനീഷ്യ സിംഗപ്പൂർഎന്നീ രാജ്യങ്ങളിലും ഗ്രഹണം ദൃശ്യമായി

ഉത്തർപ്രദേശിന്റെ പല ഭാഗങ്ങളിലും അതിശൈത്വം റോഡ് റെയിൽ ഗതാഗതത്തെ സാരമായി ബാധിച്ചിട്ടുണ്ട്

കൂടുതൽ വിവരങ്ങളുമായി സുനീഷ് വോയിസ് ഡൽഹിയിൽ പ്രതിഷ്പേൾ പ്രകടനങ്ങളുമായി ബന്ധപ്പെട്ട അക്രമസംഭവങ്ങളിൽ അസ്റ്റിലായവരുടെ ജാമ്യാപേക്ഷയെ ഡൽഹി പോലീസ് കോടതിയിൽ എതിർത്തു

അറസ്റ്റിലായവർ ക്രിമിനൽ പശ്ചാത്തലം ഇല്ലാത്തവരാണെന്നും പ്രതിഭാഗം കോടതിയെ അറിയിച്ചു

ബാക്കിയുള്ള ആറ് പേരുടെ ജാമ്യാപേക്ഷയിലും മറ്റന്നാൾ കോടതി വാദം കേൾക്കും

തുടർന്നാണ് ജാമ്യത്തിനായി ഇവർ സെഷൻസ് കോടതിയെ സമീപിച്ചത് ന്യൂസ് ഡെസ്ക് ആകാശവാണി

ജെ

ജെ

കിസാൻ മോർച്ച അധ്യക്ഷൻ വീരേന്ദ്ര സിംഗ് മസ്ത് ന്യൂഡൽഹിയിൽ മാധ്യമ പ്രവർത്തകരെ അറിയിച്ചതാണ് പൌരത്വ നിയമ ഭേദഗതിക്കെതിരെ ഗ്രാമീണ ഇക്കാര്യം കർഷകർക്കിടയിൽ തെറ്റിദ്ധാരണകൾ പരന്നിരിക്കുകയാണെന്നും ബി ജെ

ഇത് പരിഹരിക്കുന്നതിനായി പ്രചാരണം നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു

ജനകീയ മുന്നേറ്റമായി മാറണ്ട്മെന്ന് ഡോ

ശരിയായ രീതിയുള്ള ഭക്ഷണക്രമം ശീലിക്കുന്നതിൽ ജനങ്ങളെ ബോധവത്കരിക്കാൻ ജന്നകീയ് പ്രസ്ഥാനങ്ങൾക്ക് സാധിക്കും നല്ലതു മാത്രം ഭക്ഷിക്കാൻ പ്രേരിപ്പിക്കുകയും അത് സംബന്ധിച്ച് ജനങ്ങളിൽ അവബോധം ഉണ്ടാക്കുന്ന്തിനുമാണ് ഇറ്റ് റൈറ്റ് മേളയിലൂടെ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു

കോഹ്ലിയ്ക്ക് പുറമേ സൌത്ത് ആഫ്രിക്കൻ താരങ്ങളായ ഡെയ്ൽ സ്റ്റൈയിൽ എബി ഡി വില്ലിയേഴ്സ് ഓസ്ട്രേലിയൻ താരം സ്റ്റീവ് സ്മിത്ത് വനിതാ ക്രിക്കറ്റ് താരം എല്ലിസ് പെറി എന്നിവരും അഞ്ച് പേരുടെ പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട്

വിദേശകാര്യ മന്ത്രാലയത്തിലെ അഡീഷണൽ സെക്രട്ടറി ഇന്ദ്രമണി പാണ്ഡെയാണ് ഇന്ത്യൻ സംഘത്തെ നയിച്ചത് സമുദ്ര മേഖലയിലെ വിവിധ വിഷയങ്ങൾ സംബന്ധിച്ച ആശയങ്ങൾ ഇരു രാജ്യങ്ങളും പങ്കുവച്ചു ഇന്ത്യ ജപ്പാൻ സമുദ്ര സഹകരണം കൂടുതൽ മെച്ചപ്പെടുത്താൻ ചർച്ചകൾ ഉപകരിച്ചു ആറാമത് ഇന്ത്യ ജപ്പാൻ സമുദ്രകാര്യ സംഭാഷണം ഇന്ത്യയിൽ നടത്താനും ഇരു രാജ്യങ്ങളും ധാരണയിലെത്തി

വ്യക്തിയെ തന്നെ അടുത്ത പ്രധാനമന്ത്രിയായി നാമനിർദേശം ചെയ്യുന്നതിനെതിരെയുള്ള പ്രക്ഷോഭമാണ് ഇപ്പോൾ ഇറാഖിൽ അരങ്ങേറുന്നത് ഒക്ടോബർ ഒന്ന് മുതൽ ആരംഭിച്ച ഭരണ വിരുദ്ധ പ്രക്ഷോഭങ്ങളെ തുടർന്ന് പ്രധാനമന്ത്രി ആദെൽ അബ്ദൽ മഹ്ദി കഴിഞ്ഞ മാസം രാജിവച്ചിരുന്നു

പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള കുടിയേറ്റക്കാർ സഞ്ചരിച്ച ബോട്ട് തുർക്കിയുടെ കിഴക്ക് വാൻ തടാകത്തിൽ മുങ്ങുകയായിരുന്നു

സംസ്ഥാന വനിത ശിശുവികസന വകുപ്പിന്റെ സൈരൃം മുന്നോട്ട് എന്ന തുടർ കാമ്പയിന്റെ ഭാഗമായാണ് പരിപാടി നടത്തുന്നത്